പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഡൽഹി നിയമസഭ തെര്ഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ന് ഇന്ന് വൈകുന്നേരം ആവ്സാനിക്കും

കുറ്റവിമുക്തനാക്കി ഇംപീച്ച്മെന്റ് പ്രമേയം തള്ളി

കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പ്രതിരോധ മേഖലയിൽ തദ്ദേശീയ ഉത്പാദനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ഇപ്പോൾ നിക്ഷേപത്തിനും നവീകരണത്തിനും അനുയോജ്യമായ അന്തരീക്ഷമാണ് രാജ്യത്തുള്ളതെന്നും ശ്രീ

പ്രതിരോധ മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള രൂപരേഖ അവസാന ഘട്ടത്തിലാണെന്നും ശ്രീ

ചർച്ചിയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകും തുടർന്ന് പ്രമേയം വ്വോട്ടിനിട്ട് പാസാക്കും അതേസമയം നന്ദി പ്രമേയത്തിൻമേലുള്ള ചർച്ച രാജ്യസഭിയിൽ ്ഇന്നും തുടരും

ബോഡോ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്

സംസ്ഥാനത്ത് സമാധാനവും വികസനവും പുലരുന്നതിൽ ചരിത്രപരമായ ചുവടുവെപ്പാണ് ബോഡോ ഉടമ്പടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിക്ക് ശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് അസമിലെത്തുന്നത് വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിന് മുൻതൂക്കം നൽകുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ അസം സന്ദർശനം അസമിലെ സാംസ്കാരിക വൈവിധ്യം വെളിവാക്കുന്ന പരിപാടിയിൽ അഞ്ചു ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്

മന്ത്രി സ്ഥാനത്തേയ്ക്ക് പത്തുപേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളു എന്നാണ് റിപ്പോർട്ട്

മുഖ്യ കക്ഷികളായ ബി ജെ പി ആംആദ്മി പാർട്ടി കോൺഗ്രസ്സ് തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ് ബിജെപി അധ്യക്ഷൻ ജെ

ഒരു ടെലിവിഷൻ പരിപാടിയിൽ പത്ര നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആം ആദ്മി പാർട്ടി നൽകിയ പരാതിയിലാണ് നോട്ടീസ് ഇന്ന് തന്നെ മറുപടി നൽകാനാണ് കമ്മീഷൻ പത്രയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്

ഐ ടികളുടെ പദവി ഉയർത്തുന്നതിന് കേന്ദ്രമന്ത്രി സഭയുടെ അംഗീകാരം ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് സൂരറ്റ് ഭോപ്പാൽ ഭഗൽപൂർഅഗർതല റായ്പൂർ എന്നിവിടങ്ങളിലെ ഐഐടികളുടെ പദവിയാണ് ഉയർത്തിയതെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവദേക്കർ അറിയിച്ചു ഇതുസംബന്ധിച്ച ഐഐടി ഭേദഗതി ബില്ലിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി

മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിനും മണ്ണിന്റെ പോഷകങ്ങൾ നിയമാനുസൃതമായി ഉപയോഗിച്ച് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കർഷകരെ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ ഓഫീസിലുള്ള എല്ലാ ഹർജികളിലും തീരുമാനമെടുത്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അക്ഷയ് പ്രസിഡന്റിന് ദയാഹർജി നൽകിയത് നിർഭയ കേസിലെ മറ്റ് രണ്ട് പ്രതികളായ വിനയ് ശർമ്മയുടെയും മുകേഷ് സിംഗിന്റെയും ദയാഹർജികൾ രാഷ്ട്രപതി നേര്ക്കത്തെ നിരസിച്ചിരുന്നു

കേരളത്തിൽ കൂടുതൽ കൊറോണ വൈറസ് പോസ്ട്രീറ്റ്വ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത തുടരുകയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ

എറണാകുളത്തും തിരുവനന്തപുരത്തും രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും വന്ന രണ്ട് വിദേശ സഞ്ചാരികളും നിരീക്ഷണത്തിലുണ്ട് ചൈനയിലെ ചില യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികളെ തിരിച്ചുവിളിക്കുന്നു എന്ന പരാതി സംസ്ഥാനം നോർക്കയുടേയും കേന്ദ്ര സെക്രട്ടറിയുടേയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക്ആകാശവാണി

വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ചൈനയിൽ നിന്നും യാത്ര ചെയ്യുന്ന വിദേശ പൌരൻമാർക്ക് ഇ വിസ ഉൾപ്പെടെ ഇതിനകം നൽകിയ വിസകളുടെ സാധുത കേന്ദ്രം റദ്ദാക്കി

ഇതോടെ ട്രാപ്പ് ആധികാര ദുർവിനിയോഗം നടത്തിയിട്ടില്ലെന്ന് തെളിഞ്ഞിരിക്കൂക്യാണ് എന്നാൽ ഇംപീച്ച്മെന്റ് തട്ടിപ്പിന് മറുപടിയുമായി നാളെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് ട്രംപ്പ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കി

രണ്ടുഘട്ടമായി നടക്കുന്ന രാജ്യത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ചീഫ് സെക്രട്ടറി ടോം ജോസ് ജില്ലാ കളക്ടർമാരുമായി ചർച്ച നടത്തി സെൻസസ് പ്രവർത്തനങ്ങളും ദേശീയ ജനസംഖ്യ രജിസ്റ്റർ പ്രവർത്തനങ്ങളും രണ്ടാണെന്നും എൻ

ആർ പുതുക്കലുമായി ബന്ധപ്പെട്ട ചോദ്യാവലി കേരളത്തിൽ ശേഖരിക്കുന്നില്ലെന്നും ജനങ്ങൾക്ക് വ്യക്തത വരുത്തിനൽകാൻ ജില്ലാ കളക്ടർമാർ പ്രത്യേക ശ്രദ്ധപുലർത്തണമെന്ന് ചീഫ് സെക്രട്ടറി നിർദേശിച്ചു

കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയ്ക്കിടെയാണ് ഇത്തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുണ്ടാകുമെന്നാണ് സൂചന സംസ്ഥാനത്തിന്റെ സാമ്പത്തികസ്ഥിതി സംബന്ധിച്ച അവലോകന രേഖ ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ സമർപ്പിക്കും

എ

എ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം കേരള പോലീസിന് തിരികെ ഏൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ യ്ക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു കേരള പോലീസ് കാര്യക്ഷമമായും തൃപ്തികരമായും അന്വേഷിച്ചു വരുന്ന കേസാണ് എൻ ഐ എ സ്വമേധയാ ഏറ്റെടുത്തത്

കെ സാനുവും ഡോ എക്കുലീലാവതിയും ചേർന്ന് മേള ഉദ്ഘാടനം ചെയ്യും

ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ